കസ്റ്റഡിയിൽ മരിച്ച രാജ്കുമാറിനെ അനധികൃതമായാണോ തടവിൽ പാർപ്പിച്ചത് ചികിത്സ വൈകിയോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്

റിപ്പോർട്ട് സമയബന്ധിതമായി ലഭ്യമാക്കി നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാട്ടുകാർക്ക് എതിരെ കേസെടുത്ത് പോലീസ് കേസ് ലഘൂകരിക്കുകയാണെന്നും അടിയന്തരപ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച വി

അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി എം